എൽ

പരിഗണിക്കുന്ന പ്രത്യേക കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന മദ്യ വൃവസായി വിജയ് മല്ല്യയുടെ ആവശൃം ബോംബെ ഹൈക്കോടതി തള്ളി

രാജിക്കത്ത് പരിശോധിച്ചശേഷമുള്ള നടപടികളെക്കുറിച്ച് സ്കൂപ്പീം കോടതിയെ അറിയിക്കുമെന്ന് രമേശ് മാധ്യമങ്ങളെ അറിയിച്ചു

കുമാരസ്വാമി രാജിക്ക് തയ്യാറായിട്ടില്ല ഗവൺമെന്റിനുവേണ്ട അംഗബലം ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു

യോഗത്തിൽ സന്നിഹിതരായിരിക്കാനും ഇന്നവതരിപ്പിക്കുന്ന ധനകാര്യ ബില്ലിനനുകൂലമായി വോട്ട് ചെയ്യാനും കോൺഗ്രസ് ജെഡിഎസ് എംഎൽഎമാർക്ക് വിപ്പ് നൽകി

യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ട്രെയിനുകളിലേയും റെയിൽവേ സ്റ്റേഷനുകളിലേയും ശുചിത്വത്തിനും ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ റെയിൽവേ സഹമന്ത്രി സുരേഷ് അങ്കാടി പറഞ്ഞു ഗവൺമെന്റിന്റെ നടപടികൾക്ക് മന്ത്രി അംഗങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടു

എന്നാൽ റെയിൽവേയുടെ നില പരിതാപകരമാണെന്നും റെയിൽവേ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയമാണെന്നും കോൺഗ്രസീലെ അധീർ രഞ്ജൻ ചൌധരി കുറ്റപ്പെടുത്തി റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തേയും ശ്രീ ചൌധരി ചർച്ചയ്ക്കിട്ടെ നിശിതമായി വിമർശിച്ചു

ഐ എ

എം കെ ഡി എം കെ പാർട്ടികളിൽ നിന്ന് രണ്ടു വീതവും പി എം കെ എം ഡി എം കെ എന്നിവയിൽ നിന്ന് ഓരോ സ്ഥാനാർത്ഥിയുമാണ് രാജ്യസഭയിലയ്ക്ക് ഐകകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെട്ടത്

ഡി എം

കെ യുടെ ഡോ അൻബുമണി രാംദോസുമാണ് രാജ്യസഭയിലെത്തുക

എം കെ യെ പ്രതിനിധാനം ചെയ്ത് മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പി വിത്സൻ ട്രേഡ് യൂണിയൻ നേതാവ് ഷൺമുഖം എന്നിവരും പാർട്ടിയുടെ സഖ്യകക്ഷിയായ എം ഡി

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

റോഡപകടങ്ങൾ കുറയ്ക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെങ്കിലും അപകട നിരക്കിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ലെന്നും ശ്രീ

സംസ്ഥാനത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ശ്രീ

ഏറ്റുമുട്ടലിലൂടെ അക്രമികളെ തുരത്താനായതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു

അക്രമികളെ പിടികൂടാനായി വ്യാപകമായ തെരച്ചിൽ നടത്തിയതായും സേന അറിയിച്ചു

ഇതു സംബന്ധിച്ച് മല്ല്യ ഫയൽ ചെയ്ത ഹർജി ജസ്റ്റിസുമാരായ അഖിൽ ഖുറേഷി എസ്

കത്തവല്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ച് തള്ളുകയായിരുന്നു സാമ്പത്തിക കുറ്റകൃത്യ നിയമത്തിന്റെ സാധുതയെയാണ് മല്ല്യ ഹർജിയിൽ ചോദ്യം ചെയ്തത് മില്ല്യയുടെ വാദത്തിൽ കഴമ്പില്ലെന്ന് കണ്ട കോടതി പ്രഹ്ർജി തള്ളി ഉത്തരവിട്ടു

ഡി ബി

അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എസ് ഇന്ത്യ തന്ത്രപ്രധാന വാണിജ്യ സഹകരണ ഫോറത്തിന്റേതാണ് വിലയിരുത്തൽ ഇന്നലെ നടന്ന ഫോറത്തിന്റെ രണ്ടാമത് നേതൃത്വ ഉച്ചകോടിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതുസംബന്ധിച്ച പരാമർശം

വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ൻബ്രിഡിച്ച് യോഗം ചർച്ച ചെയ്തതായി വിദേശകാരൃ മന്ത്രാലയ്ം അറിയിച്ചു

അമേരിക്കയുടെ പ്രതിരോധ വിക്കുപ്പിനെ ഉദ്ധരിച്ചു ചില മാധ്യമങ്ങളാണ് ബ്രിട്ടീഷ്ട് എണ്ണ ടാങ്കർ പിടിച്ചെടുക്കാൻ ഐആർജിസിയുടെ അഞ്ച് ബോട്ടുകൾ ശ്രമിച്ചുവെന്നും പിന്നീട് ബ്രിട്ടീഷ് നാവികസേനിയുടെ ഇടപെടലിനെ തുടർന്ന് ഇറാൻ ബോട്ട് പിൻമാറിയെന്നും വാർത്ത പുറത്തുവിട്ടത്

വിദേശ കപ്പലുകളുമായി ഒരു തരത്തിലും ഏറ്റുമുട്ടലുണ്ടായില്ലെന്നും കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഉത്തരവ് ലഭിച്ചാൽ അത് കൃത്യതയോടെ ശക്തിയുക്തം നടപ്പാക്കാൻ നാവിക സേന സജ്ജമാണെന്നും ഐആർജിസി കൂട്ടിച്ചേർത്തു

ലോകകപ്പ് ഫൈനലിൽ ആദ്യമായെത്തിയ ന്യൂസിലാന്റ് ആണ് ഇംഗ്ലണ്ടിന്റെ എതിരാളി ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം വഴിയിൽ സ്ഥാപിച്ചിരുന്ന മൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരിൽ നാലു പേരുടെ നില ഗുരുതരമാണെന്ന് ഐക്യരാഷട്ര സംഘടന അറിയിച്ചു